ചൌരി ചൌരാ സംഭവത്തിന്റെ ് ശതാബ്ദിയാഘോഷങ്ങൾക്ക് ഉത്തർപ്രദേശിൽ തുടക്കം ക്ടുറിക്കുകയായിരുന്നു അദ്ദേഹം ചൌരി ചൌരാ നൽകിയുട്ട് സ്ന്ദേശം വലുതായിരുന്നെന്നും എന്നാൽ അവയ്ക്ക് പ്രാമുഖ്യം വേണ്ടവിധത്തിൽ ലഭിക്കാതെപോയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് ഉത്തർപ്രദേശിലുടനീളം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്

കേന്ദ്രസർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബി ജെ പി എം പി ജ്യോതിരാദിത്യ സിന്ധൃ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഭിനന്ദിച്ചു കാർഷിക നിയമങ്ങൾ രാജൃത്ത് വിപ്തവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കർഷകർക്കും തൊഴിലാളികൾക്കും മനുഷ്യവകാശ പ്രവർത്തകർക്കും മാധ്യമുപ്രവർത്തകർക്കുമെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്നതിട്ടെതിര്രെ കോൺഗ്രസ് എം പി ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നൂപ്പ്ർച്ച്കൾ പുരോഗമിക്കുകയാണ്

രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നത് ആർക്കും തടയാനാവില്ല വ്യാജ പ്രചരണങ്ങളല്ല പുരോഗതിയും വികസനവുമാണ് ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുകയെന്നും ശ്രീ അമിത് ഷാ ട്ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

അക്ഷയ് കുമാർ അജയ് ദേവ്ഗൺ തുടങ്ങിയ താരങ്ങളും കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇന്ത്യൻ വിദേശകാരൃമന്ത്രാലയം ഈ വിഷയത്തിൽ ചില വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് സർക്കാർ അനുകൂല നിലപാടുമായി സെലിബ്രിറ്റികൾ രംഗത്ത് വന്നത്

ഇന്ത്യൻ മുഹാസമുദ്രത്തിലെ സമാധാനം സുരക്ഷ സഹകരണം എന്നതാണ് ഉച്ചകോടിയുടെ ചർച്ചാ വിഷയം

ബംഗളുരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും

അന്നുതന്നെ അദ്ദേഹം ആന്ധ്രാപ്രദേശ് വഴി ഡൽഹിക്ക് മടങ്ങും

ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു

വരും ദിവസങ്ങളിൽ കേന്ദ്ര സംഘം മിറ്റും ജില്ലകളിലും പര്യടനം നടത്തും

വിദ്യാലയങ്ങളുടെ ശുചീകരണം ക്ലാസുകളുടെ ക്രമീകരണം സാമൂഹിക അകലം പാലിച്ച് വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ പാർപ്പിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൈക്കൊണ്ടു കഴിഞ്ഞു

ഇതിന്റെ ടിക്കറ്റുകൾ ഇന്ന് മുതൽ യാത്രക്കാർക്ക് ലഭ്യമാകും

ടി

സി ആർ പരിശോധന നടത്തിയവർക്ക് മാത്രമാണ് യാത്രയ്ക്ക് അനുമതി നൽകുക

വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലുമാണ് പ്രദർശനം

വരുന്ന രണ്ടു ദിവസങ്ങളിൽ കൂടി മഞ്ഞുവീഴ്ച തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നും ഇടിയോടു കൂടിയ മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി

കോവിഡ് പശ്ചാത്തലത്തിൽ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ക്ലബ്ബ് അംഗങ്ങൾക്ക് മാത്രമായിരിക്കും ടിക്കറ്റുകൾ ലഭൃമാക്കുക

എസ്

തീരുമാനം ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും ആണവരംഗത്തെ മത്സരം എല്ലാവർക്കും ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഞായറാഴ്ച വരെയാണ് നിരോധനം ഫെയ്സ് ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി ഭരണകൂടം ആരോപിച്ചു എല്ലാ മൊബൈൽ ഓപ്പറേറ്റർമാരോടും സേവന ദാതാക്കളോടും ഫെയ്സ് ബുക്ക് ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട് പ്യൂർത്താവിനിമയ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായി റോയില്ലേഴ്സ് റിപ്പോർട്ട് ചെയ്തു